മുൻപ്രധാനമന്ത്രി വാജ്പേയിയുടെ നില ഗുരതരമായി തുടരുന്നു വാജ്പേയിയെ സന്ദർശിക്കാൻ പ്രമുഖരുടെ നീണ്ടനിര

ഡൽഹിയിലെ എയിംസിൽ ചിക്തിസയിൽ കഴിയുന്ന വാജ്പേയിയുടെ നില രണ്ടു ദിവസമായി മോശമാണെന്ന് എയിംസ് അധികൃത്ർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു

ബി ജെ പി അധ്യക്ഷൻ അമിത് ഷാ മുതിർന്ന ബി ജെ പി നേതാവ് എൽ കെ അദാനി തുടങ്ങിയവരും ആശുപത്രിയിൽ എത്തി

മിക്ക ജില്ലകളിലും കനത്ത മഴയും കാറ്റും ഇപ്പോഴും തുടരുകയാണ് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്

മരണസംഖ്യ ഇനിയും ഉയരാമെന്നാണ് സൂചനകൾ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം ജില്ലകളിൽ പലയിടങ്ങളിലും വ്യാപക ഉരുൾപൊട്ടലുണ്ടായി നെൻമാറ അലുവാശ്ശേരിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഏഴ് പേർ മരിച്ചു മണ്ണാർക്കാട് മയിലാംപാടം എന്നിവിടങ്ങളിലും ഉരുൾപൊട്ടി നിരവധി കുടുംബങ്ങളെ മാറ്റിപാർപ്പിച്ചു അട്ടപ്പാടി ചുരത്തിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ആനമുളി ചെക് പോസ്റ്റ് അടച്ചു കരടിമലയിൽ മണ്ണിടിഞ്ഞ് ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ കാണാതായി തൃശൂർ പെരിങ്ങൽകുത്ത് ഡാം നിറഞ്ഞുകവിഞ്ഞതിനാൽ ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയരുകയാണ് ചാലക്കുടിയിൽ മുന്നൂറിലധികം പേർ വീടുകളിൽ കുടുങ്ങി കോഴിക്കോട് കക്കാടംപൊയിൽ നാദാപുരം പ്രവിലങ്ങാട് മുക്കം കൂമ്പാറ എന്നിവിടങ്ങളിലാണ് ഉരുൾപൊട്ടിയത് ക്വ്മ്പാറ്റ്യിൽ ഉരുൾപൊട്ടി രണ്ട് പേർ മരിച്ചു അഞ്ച് പേരെ രക്ഷപ്പെടുത്തി ഉൾക്കടവിൽ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞ് വീണ് രണ്ട് പേർ മരിച്ചു

മലപ്പുറം ഊർക്കടവിൽ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞ് വീണു മണ്ണിനടിയിൽ കുടുങ്ങിയ നാല് പേരെ രക്ഷപ്പെടുത്തി കാണാതായ രണ്ട് പേർക്കായി തെരച്ചിൽ തുടരുകയാണ് പാലക്കാട് നെന്മാറയിൽ ഉരുൾപൊട്ടി നാല് പേരാണ് മരിച്ചത്

മംഗലം പോത്തുണ്ടി ഡാമുകളുടെ വൃഷ്ടി പ്രദേശങ്ങളിലും ഉരുൾപൊട്ടലുണ്ടായി ഇടുക്കി മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതിനാൽ പെരിയാറിൽ ജലനിരപ്പ് ഉയരുകയാണ് കോട്ടയം തീക്കോയ് വെണ്ണിക്കുളത്ത് വീടിന് മുകളിൽ മണ്ണിടിഞ്ഞ് വീണ് രണ്ടു കുട്ടികളുൾപ്പെടെ നാല് പേർ മരിച്ചു പത്തനംതിട്ട ജില്ലയിൽ കനത്ത മഴയിൽ മലയോര പ്രദേശങ്ങൾ പൂർണമായും ഒറ്റഉപ്പട്ടു

കോഴഞ്ചേരി ആറൻമുള തിരുവല്ല ഭാഗങ്ങളിൽ പമ്പയാറ് കരകവിഞ്ഞൊഴുകുന്നതിനാൽ നിരവധി വീടുകൾ വെള്ളത്തിനടിയിലാണ്

കേരളത്തില്ലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി പ്രാർത്ഥിക്കുന്നുവെന്നും ആവശ്യമായ എന്ത് സഹായവും നൽകാനും കേന്ദ്രം എപ്പോഴ്ചുർ തയ്യാറാണെന്നും ശ്രീ നരേന്ദ്രമോദി നൽകി ദുരിത്രാൾാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം ഉറപ്പ് നൽകുന്നതിനായി പ്രധാന്മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം ഉച്ചയ്ക്കുശേഷം തിരുവന്തപുരത്തെത്തും

സംസ്ഥാനത്ത് നാല് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുന്നു വെള്ളപ്പൊക്കത്തിൽ ചില ഇടങ്ങളിൽ തീവണ്ടിപാതകൾ ഒലിച്ചുപോയി

ബി എസ് എഫ് ദുരന്ത പ്രതീകൂരണ് സേന പൊലീസ് ജില്ലാ ഭരണകൂടം എന്നവയുട്ടു സംയുക്ത രക്ഷാപ്രവർത്തന ദൌത്യത്തിലാണ് ഇവരെ സ്കൂർക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത്

ഇ്പർക്കായുള്ള തിരച്ചിൽ തുടരുന്നതായി ശിവപുരി എസ് പി അറിയിച്ചു

കശ്മീരിലെ ബാൽതാൽ പഹൽഗാം ബേസ് ക്യാമ്പുകളിൽ നിന്നാണ് സന്യാസിമാരും വനിതകളും അടങ്ങുന്ന സംഘം ഇന്ന് പുറപ്പെട്ടത്

ഇന്നലെ രാത്രി മുംബൈയിലായിരുന്നു അന്ത്യം

രാഷ്ട്രപതി രാംനാഥ് ക്ടോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വഡേക്കറിന്റെ നിര്യാണ്ണത്തിൽ അനുശോചിച്ചു ഇന്ത്യൻ ക്രിക്കറ്റിലെ പ്രതിദ്ദാൾന്നനായ ഇടംകയ്യൻ ബാറ്റ്സ്മാനായിരുന്നു വഡേക്കറ്റെന്ന് രാഷ്ട്രപതി അനുസ്മരിച്ചു

രാജ്യത്തിലെ മതനിരപേക്ഷരത നിർത്തുന്നതിൽ പാഴ്സി സമൂഹം വഹിക്കുന്ന പങ്ക് നിസ്തുലമാണെന്ന് അദ്ദേഹം പറഞ്ഞു

ഇക്കഴിഞ്ഞ ഏപ്രിലിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവ് പാർട്ടിയിലെ ഹൊരാഷിയോ കാർട്ടസിനെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് മുൻ സൈനിക ഏകാധിപതി ആൽഫ്രഡോ സ്ട്രോസ്നറുടെ മകനാണ് മാരിയോ

രാജ്യത്തെ കിറ്റോ നഗരത്തിന് സമീപത്താണ് അപകടം

സിംഗപ്പൂരിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധി ജാവേദ് അഷ്റഫ് അറിയിച്ചതാണ് ഇക്കാര്യം

യു എസിന്റെ ക്ഷണപ്രകാരമാണ് ചർച്ചു ചൈനീസ് വ്യാപാര സഹമന്ത്രി വാങ് ഷൌവെനും അമേരിക്കയുടെ മുതിർന്ന ട്രഷറി ഉദ്യോഗസ്ഥൻ ഡേവിഡ് മാൽപാസും തമ്മിലായിരിക്കും കൂടിക്കാഴ്ച ചർച്ചയ്ക്കുള്ള തീരുമാനത്തെ ചൈന അനുഭാവപൂർവ്വം സ്വീകരിച്ചതായി യു എസ് മന്ത്രാലയം അറിയിച്ചു

ദർശനത്തിനായി ഇനി ക്യൂ നിൽക്കുന്നതിന് പകരം മുൻകൂർ ബുക്ക് ചെയ്യാനുള്ള സംവിധാനമാണ് ഇന്നു്മുതൽ നിലവിൽ വരുന്നത്

നേപ്പാളിനെയാണ് ഇന്ത്യ നേരിടുന്നത് മൂന്ന് പേരടങ്ങിയ ഗ്രൂപ്പ് എ യിൽ ചാമ്പ്യൻമാരായാണ് ഇന്ത്യൻ വനിതകൾ സെമിയിൽ എത്തുന്നത് ഇന്ന് നടക്കുന്ന രണ്ടാമത്തെ സെമിയിൽ ബംഗ്ലാദേശ് ഭൂട്ടാനെ നേരിടും ഫൈനൽ മത്സരം ശനിയാഴ്ച നടക്കും

ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നാണ് മുന്നോടിയായി പ്രവാസി ഇന്ത്യാക്കാരെ കാണുന്നതിനാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ യാത്ര ഇരു രാജ്യങ്ങളിലും വ്യാപാരികളും വിവിധ രംഗത്തെ പ്രതിഭകളുമായും ശ്രീ രാഹുൽഗാന്ധി ചർച്ച നടത്തും

അതേസമയം അടുത്തിടെ ഒട്ടേറെ സാധാരണക്കാരുടെ മരണമുണ്ടായ കിഴക്കൻ നഗരമായ ഗസ്നി സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു